പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വിജിലൻസ് കമ്മീഷ്ഷൻ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് സുപ്രീംകോടതി

തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശപത്രിക പിൻവലിക്കാനുള്ള അവസാനദിനം ഇന്ന്

ഇന്തൃയും ബംഗ്ലാദേശും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു

തുടക്കമായി ആദ്യ സ്വർണം തിരുവനന്തപുരത്തിന് പോയിന്റ് നിലയിൽ എറണാകുളം മുന്നിൽ

കർഷകരുടെ സമഗ്ര വികസനത്തിനായി കേന്ദ്രഗവൺമെന്റ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

കർഷകർക്ക് സാങ്കേതിക വിദൃയിലൂടെയുള്ള സഹായം നൽകുന്നതിന് പുറമേ അവരുടെ ഉന്നമനത്തിനായി സോയിൽ ഹെൽത്ത് കാർഡ് സൌരോർജ്ജ പമ്പുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കി വരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു സാങ്കേതിക വിദ്യയുടെ ഉപയോഗംമൂലം കാർഷികരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക പുതിയ സാങ്കേതിക വിദ്യ പരിശീലനം നൽകുക കാർഷിക മേഖലയിൽ വൈവിധൃങ്ങൾ കൊണ്ടുവരിക എന്നിവ ലക്ഷ്യമിട്ടാണ് മൂന്ന്ദിവസത്തെ കൃഷി കുംഭ് സംഘടിപ്പിച്ചിരിക്കുന്നത് ലോകത്തെ രണ്ട് പ്രധാന സാമ്പത്തിക ശക്തികളായ ഇസ്രയേൽ ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ഔദ്യോഗിക പങ്കാളികൾ

ബി ഐ യിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ കോടതിയുട്ടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവ് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എ

പട്നായിക്കിന്റെ മേൽനോട്ടത്തിൽ കേന്ദ്ര വിജിലൻസ് കമ്മിഷനായിരിക്കും അന്വേഷണ ചുമതല

ബി ഐ ഡയറക്ടറായിരിക്കെ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ച കേന്ദ്ര ഗവൺമെന്റ് നടപടി ചോദ്യം ചെയ്ത് ഡയറക്ടർ അലോക് വർമ്മ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി രണ്ടാഴ്ചയ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടു കൂടാതെ നിർണ്ണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് സി ബി ഐയുടെ ഇടക്കാലമേധാവിയായി നിയമിതനായ നഗേശ്വരറാവുവിനെ കോടതി വിലക്കി

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബഞ്ചാണ് ഹർജി പരിഗണിച്ചത്

രണ്ട് തീവ്രവാദ്യിക്ൽ കൊല്ലപ്പെട്ടു

ഏറ്റുമുട്ടലിൽ ് സാരമായി പരിക്കേറ്റ ജവാൻ സൈനിക ആശുപ്പത്തിയിൽ മരണപ്പെടുകയായിരുന്നു തീവ്രവാദികൾ ബഹ്രൂപ്പു്ര പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം പ്രത്യേക ദൌത്യ സംഘം ജമ്മുകശ്മീർ പൊലീസ് സി ആർ പി എഫ് ഉൾപ്പെട്ട സംയുക്ത സംഘം തിരച്ചിൽ നടത്തുകയായിരുന്നു തുടർന്ന് തീവ്രവാദികൾ വെടിയുതിർക്കുകയും ഏറ്റുമുട്ടലിൽ കലാശിക്കുകയും ചെയ്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചിദംബരത്തിനും മറ്റ് എട്ട് പേർക്കുമെതിരെ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി കോടതിയിൽ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു

ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തേയും അക്കൌണ്ടന്റ് ഭാസ്കരരാമനേയും ക്കൂറ്റപത്രത്തിൽ പ്രതി ചേർത്തിട്ടുണ്ട് കളളപണം വെളുപ്പിക്കൽ കേസിലാണ് മുൻ ധനകാര്യ മന്ത്രിക്കും അദ്ദേഹൃത്തിന്റെ മകനുമെതിരെ കുറ്റം ആരോപിക്കപ്പെടുന്നത്

ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ചരക്കൂകൾ കൈമാറ്റം ചെയ്യുന്നതിനായി ബംഗ്ലാദേശിലെ ചറ്റോഗ്രം മെംഗ്ല തുറമുഖങ്ങൾ ഉപയോഗിക്കാൻ ധാരണയായതായി ഷിപ്പിംഗ് സെക്രട്ടറി ഗോപാൽകൃഷ്ണ ബംഗ്ലാദേശ് ഷിപ്പിംഗ് സെക്രട്ടറി മുഹമ്മദ് അബ്ദുസ് സമദ് എന്നിവർ മാധ്യമങ്ങൾക്ക് നൽകിയ സംയുക്ത അഭിമുഖത്തിൽ വൃക്തമാക്കി

വ്യാവസായിക ടൂറിസം മേഖലയ്ക്ക് പ്രചോദനമേകാനും വിനോദ സഞ്ചാരത്തിനും ചരക്ക് ഗതാഗതത്തിനും ഈ കരാറുകൾ സഹാകമാകും

മുംബൈയിൽ ഇന്നലെ ദി എക്കണോമിസ്റ്റ് ഇന്ത്യ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഭാവിയിൽ കൽക്കരികൊണ്ടുവരുണ്ടിിനുള്ള പാതകളുടെ പണികൾക്ക് മുൻഗണന നൽകുമെന്നും ചില പാതകളുടെ പണി പൂർത്തീകരിച്ചു വരികയാണെന്നും ശ്രീ പീയുഷ് ഗോയൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്രവനിത ശിശു ക്ഷേമ വികസനമന്ത്രി മനേക ഗാന്ധി മേള ഉദ്ഘാടനം വനിത കർഷകരെയും സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്

അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ മേള ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ ഒരുമിപ്പിക്കാനുള്ള ശക്തമായ മാധ്യമമാണ് സിനിമയെന്ന് ശ്രീ സോനോവാൾ ചടങ്ങിൽ പറഞ്ഞു

സംസ്ഥാന സ്കൂൾ കായികേമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി പ്രളയത്തെ തുടർന്ന് ആർഭാട്ടങ്ങൾ ഒഴുവാക്കിയാണ് ഇത്തവണ മേള അരങ്ങേറുന്നത്

ശ്രീകാന്തും സൈന നെഹ്വാളും പി

സിന്ധു ചൈനയുടെ ബിങിജിയെയും നേരിട്ടും